തുടർന്ന് പാർലമെന്റിന്റെ ഇരുസഭകളും ഉച്ചവരെ നിർത്തിവച്ചു

പുരസ്കാരങ്ങൾ ന്യൂഡൽഹിയിൽ കേന്ദ്രമന്ത്രി മേനകാ ഗാന്ധിച്ച്തരണം ചെയ്തു

ഉത്തരേന്ത്യയിൽ കനത്ത മഴയും മഞ്ഞ് വീഴ്ചയും

ഇന്ത്യയ്ക്ക് ആദ്യപരമ്പര ജയം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഇന്ത്യൻ ടീമിനെ അഭിനന്ദിച്ചു

ബഹളത്തെ തുടർണ്ണ് രാജ്യസഭ ഉച്ചയ്ക്ക് രണ്ട് മണിവരെ നിർത്തിവച്ചു

പ്രധാനമായും റഫാൽ വിഷയമാണ് പ്രതിപിക്ഷ കക്ഷികൾ ലോക്സഭയിൽ ഉയർത്തിയത് ആ്ഡ്രാപ്രദേശിന് പ്രത്യേക സാമ്പത്തിക പാക്കേജ് നൽകണമെന്ന ആവശ്യമായിരുന്നു ടി ഡി പി ഉയർത്തിയത് അതേസമയം രാജ്യസഭയിൽ ഉത്തർപ്രദേശിലെ വിവിധ ഖനികളിൽ സി ബി ഐ റെയ്ഡിനെതിരെയാണ് പ്രധാനമായും പ്രതിപക്ഷ പ്രതിഷേധം ഉയർന്നത് കനത്ത പ്രതിഷേധത്തെ തുടർന്ന് രാജ്യസഭാ നടപടികൾ രണ്ടു മണിവരെ നിർത്തിവയ്ക്കുകയായിരുന്നു

വൃക്തിനിയമ ഭേദഗതി ബിൽ ഡി എൻ എ സാങ്കേതിക വിദ്യാ ഉപയോഗബിൽ ദേശീയ മെഡിക്കൽ കമ്മീഷൻ ബിൽ എന്നിവ ലോകസഭയുടെ പരിഗണനയ്ക്ക് വരും ഇന്ത്യൻ ചികിത്സാ സമ്പ്രദായത്തിനുള്ള ദേശീയ കമ്മീഷൻ ബിൽ ഉപഭോക്തൃ സംരക്ഷണ ബിൽ മുസ്ലീം വനിതാ വിവാഹ അവകാശ സംരക്ഷണ ബിൽ എന്നിവ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കും

പാർലമെന്റിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്

സംയോജിത ശിശുവികസന പദ്ധതി കാര്യക്ഷമമായി നടപ്പാക്കാൻ പരിശ്രമിച്ചതിനുള്ള അംഗീകാരമായാണ് പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്

കഴിഞ്ഞവർഷത്തെ തുകയുടെ ഇരട്ടിയാണിത് കുട്ടികളുടെ ക്ഷേമത്തിനായി വകയിരുത്തിയിരുന്ന കോടിക്കണക്കിന് തുക മുൻകാലങ്ങളിൽ ഉപയോഗിക്കാതെ പാഴാക്കിയിരുന്നതായി കേന്ദ്രമന്ത്രി മുന്നേക്കാ ഗാന്ധി പറഞ്ഞു ഭാവിയിൽ ഇക്കാര്യത്തിൽ ജാഗ്രത്യ പ്പുലർത്താൻ അംഗൻവാടി പ്രവർത്തകരോട് കേന്ദ്രമന്ത്രി നിർദ്ദേശിച്ചു

ഇത് സംബന്ധിച്ച നിയമം ഉടൻ കൊണ്ടുവരുമെന്ന് കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദ് അറിയിച്ചു വിശദാംശങ്ങളുമായി റിനൽ

ഡ്യൂപ്പിക്കേറ്റ് ലൈസൻസ് വാഹനാപകടത്തിൽപ്പെടുന്നവർ ഡ്യൂപ്സിക്കേറ്റ് ലൈസൻസ് സംഘടിപ്പിച്ച് നിയമത്തേയും ജനങ്ങളേയും കബളിപ്പിച്ച് രക്ഷപ്പെടുന്നത് ഒഴിവാക്കാൻ പുതിയ നിയമം സഹായകമാകും ആധാറിൽ ബയോ മെട്രിക്സ് വിവരങ്ങളും രേഖകളും ഉള്ളതിനാൽ കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനാവില്ല

ഡിജിറ്റൽ ഇന്ത്യാ പദ്ധതിയ്ക്ക് ഗ്ഗാമങ്ങളും നഗരങ്ങളും തമ്മിലുണ്ടായിരുന്ന വേർതിരിച്ച് കുറിയ്ക്കാൻ കഴിഞ്ഞതായി ശ്രീ രവിശങ്കർ പ്രസാദ് പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

കേന്ദ്രമന്ത്രി അരുൺ ജെയ്റ്റ്ലിയാണ് പ്രചാരണ കമ്മിറ്റി അധ്യക്ഷൻ മാധ്യമസംഘം കമ്മിറ്റിയുടെ ചുമതല കേന്ദ്രമന്ത്രി രവിശങ്കർ പ്രസാദിന് നൽകി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് സാഹിത്യപരമായ സംഭാവനകൾ നൽകുന്നതിനുള്ള കമ്മിറ്റിയുടെ ചുമതല കേന്ദ്രമന്ത്രി സുഷമാ സ്വരാജിന് നൽകി

ജമ്മുകശ്മീരിൽ ലുഡ്രിക്കിലാണ് ശൈത്യം രൂക്ഷം ഹിമാചൽപ്രദേശിൽ സ്സിറ്റ്ല അതിശൈത്യത്തിന്റെ പിടിയിലാണ്

പല ജില്ലകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി നൽകിരിക്കുകയാണ്

ഉദ്യോഗസ്ഥരൂം ഉന്നത വ്യാപാര പ്രതിനിധികളും അവരെ അനുഗമിക്കുന്നുണ്ട്

രാഷ്ട്രപതി രാംനാഥ് കോവിന്ദുമായും പ്രധാ നമന്ത്രി നരേന്ദ്രമോദിയുമായും ചർച്ചകൾ നടത്തും ഉപരാഷ്ട്ര പതി എം വെങ്കയ്യനായിഡു വിദേശ കാര്യമന്ത്രി സുഷമ സ്വരാജ് എന്നിവരുമായും കൂടിക്കാഴ്ച നടത്തും റെയ്സീന സംഭാഷണത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തെ എർണ സോൾ ബെർഗ് അഭിസംബോധന ചെയ്യും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്താൻ സന്ദർശനം സഹായകമാകുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു നൂറിലേറെ നോർവെക്കുക്മ്പനികൾ ഇന്ത്യയിൽ നിക്ഷേപം നടത്തിയിട്ടുണ്ട്

വിദേശകാര്യ മന്ത്രി സുഷമ സ്വരാജുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും

എം

തൊഴിൽ നിയമഭേദഗതി പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കൾ പണിമുടക്ക്

വിവിധ വകുപ്പുകൾ ഏകോപി പ്പിച്ച് വിപുലവും ഫലപ്രദവുമായ ക്രമീകരണങ്ങളാണ് സന്നിധാനത്തും മറ്റ് പ്രദേശങ്ങളിലും ഒരു ക്കുന്നത് ശബരിമലയിലും പരിസരത്തും സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്

ഓസീസ് മണ്ണിൽ ടെസ്റ്റ് പരമ്പര ജയിക്കുന്ന ആദ്യ ഏഷ്യൻ ക്യാപ്റ്റൻ എന്ന ബഹുമതി വിരാട് കോഹ്ലിക്ക് സ്വന്തമായി

മോശം കാലാവസ്ഥയാണ് തോൽവിയുടെ വക്കിൽനിന്ന ഓസ്ട്രേലിയയ്ക്ക് സമനില നേടികൊടുത്തത്

മത്സരം അവസാനിച്ചപ്പോൾ വിക്കറ്റ് നഷ്ടപ്പെടാതെ നാല് റണ്ണുമായി ഉസ്മാൻ ഖവാചയും രണ്ട് റണ്ണുമായി മാർക്കസ് ഹാരിസുമായിരുന്നു ക്രീസിൽ അഞ്ചാം ദിനമായ ഇന്ന് ടീമുകൾ ഇറങ്ങിയെങ്കിലും മഴമുലം കളി ഉപേക്ഷിക്കുകയായിരുന്നു

ന്യൂസ് ഡെസ്ക് ആകാശവാണി ഹോൾഡ് ചരിത്രനേട്ടം കൈവരിച്ച ഇന്ത്യൻ ട്ടീമിന്റെ ്രാഷ്ട്രപതി രാംനാഥ് കോവിന്ദും പ്രധാനമന്ത്രി നരേന്ദ്ര്മോദിയും അഭിനന്ദിച്ചു

കേരളത്തിന്റെ പുരുഷ ടീം ആന്ധ്രാപ്രദേശിനെയും വനിതാ ടീം ഹരിയാനയെയും നേരിടും